സർവകലാശാല വികസിപ്പിച്ച കോവിഷീൽഡ് എന്നീ രണ്ട് കോവിഡ് വാക്സീനുകൾക്ക് രാജ്യത്ത് അനുമതി

ദേശീയ മെട്രോളജി കോൺക്സേവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്ഘാടനം ചെയ്യും

പ്രതിരോധ കുത്തിവയ്പിന് കേരളം പൂർണ്ണ സജ്ജമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ

തോമസ് വിന്റർ ബർഗിന്റെ അനദർ റൌണ്ട് ഉദ്ഘാടന ചിത്രം

വാക്സിന്റെ നിയന്ത്രിത ഉപയോഗത്തിന് വിദഗ്ദ്ധ സമിതി ശ്യൂപാർശ ്നൽകിയതിനെ തുടർന്നാണ് ഇത് കൂടുതൽ വിവരങ്ങളുമായി കിരൺ ശ്രങ്കർ ഐസിഎംആറും ദേശീയ ക്ലെവ്യോളജി ഇൻസ്റ്റിട്യൂട്ടുമായി ചേർന്ന് ഹൈദരബാദ് ആസ്ഥാനമായുള്ള ഭാരത് ബയോട്ടെക്ക് നിർമ്മിച്ച കോവാക്സിനും ഓക്സ്ഫോർഡ് സർവ്വകലാശാലയും ആസ്ട്ര സെനക്കായുമായി ചേർന്ന് പൂനൈ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കുന്ന കോവിഷീൽഡിനും ആണ് ഡ്രഗ്സ് കൺട്രോൾ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചത് ഇരു വാക്സിനുകളും അടിയന്തര ഘട്ടത്തിൽ നിയന്ത്രിതമായി വിതരണം ചെയ്യാൻ വിദഗ്ദ്ധ സമിതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു ജനിതകമാറ്റം വന്ന വൈറസിന്റെ വ്യാപനത്തെ തുടർന്ന് മുൻകരുതൽ എന്ന നിലയ്ക്ക് വാക്സിൻ വിതരണത്തിന് അനുമതി നൽകാനാണ് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തത് ഇതോടെ യുഎസ് യുകെ തുടങ്ങിയ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് ശേഷം വാക്സിൻ വിതരണത്തിന് അനുമതി നൽകുന്ന രാജ്യമായി ഇന്ത്യ മാറി അതെ സമയം നാല് വാക്സിനുകൾ പ്രവർത്തന ഘട്ടത്തിലേക്ക് അടുക്കുന്ന ഒരേ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി പ്രകാശ് ജാവദേക്കർ ഇന്നലെ പറഞ്ഞു

സ്വാശ്രയ ഇന്ത്യയെന്ന സ്വപ്നം നിറവേറ്റാനുളള ഇന്ത്യൻ ശാസ്ത്ര സമൂഹത്തിന്റെ അഭിനിവേശമാണ് ഇത് കാണിക്കുന്നതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഭാരത് ബയോടെക് എന്നിവയുടെ വാക്സിനുകൾക്ക് ഡി

അനുമതി നൽകുന്നത് ആരോഗ്യകരവും കോവിഡ് രഹിതവുമായ രാജ്യത്തിലേക്കുള്ള യാത്ര വേഗത്തിലാക്കാൻ സഹായിക്കും കഠിനാധാനികളായ ശാസ്ത്രജ്ഞരെ അദ്ദേഹം അഭിനന്ദനം അറിയിച്ചു

ഒഡീഷയിലെ ഐ ഐ

വിക്സനക്കുതിപ്പിൽ പിന്തള്ളപ്പെട്ടവരെകൂടി മുഖ്യധാരയിലേക്ക് എത്തിക്കുമ്പോൾ മാത്രമാണ് രാജ്യത്തിന്റെ വികസനം പൂർണമാകുന്നത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ദേശീയ പരിസ്ഥിതി സ്റ്റാൻഡേർഡ് ലബോറട്ടറിക്കും പ്രധാനമന്ത്രി തറക്കില്ലിടും കേന്ദ്രമന്ത്രി ഹർഷവർദ്ധനും ചടങ്ങിൽ പങ്കെടുക്കും

അന്താരാഷ്ട്ര നിലവാരമനുസരിച്ച് ലബോറട്ടറികളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതാണ് ഭാരതീയ നിർദ്ദേശക് ദ്രവൃ

എസ് ജപ്പാൻ ബ്രസീൽ തുടങ്ങിയ പതിമൂന്ന് രാജ്യങ്ങളിലായാണ് ് സർവ്വെ നടന്നത്

ആറാംവട്ട ചർച്ചയിൽ കർഷകരുടെ രണ്ട് ആവശ്യങ്ങളിൽ ധാരണയായിരുന്നു കേന്ദ്രമന്ത്രിമാരായ നരേന്ദ്രസിംഗ് തോമറും പീയൂഷ് ഗോയലുമാണ് കഴിഞ്ഞ ചർച്ചകളിൽ പങ്കെടുത്തത്

സാർവത്രിക കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് നടപ്പാക്കാൻ വിദഗ്ധരെ പരിശീലിപ്പിച്ചു വരുന്നതായും അദ്ദേഹം ട്വീറ്റിലൂടെ അറിയിച്ചു

മേഖലയിൽ വിനൃസിച്ചിരിക്കുന്ന കരസേന ഇൻഡോ ടിബറ്റൻ അതിർത്തി പോലീസ് സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തി

കേന്ദ്രസർക്കാരിന്റെ മാർഗനിർദ്ദേശമനുസരിച്ചുള്ള മുൻഗണനാ പട്ടിക പ്രകാരം വാക്സിൻ നല്കുമെന്ന് ആരോഗൃമന്ത്രി കെ

ഇതോടെ രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം ഏഴു ലക്ഷം കടന്നു

ബ്രിട്ടണിൽ നിന്ന് ഇന്തൃയിലേക്കുളള വിമാന സർവീസുകൾ ജനുവരി എട്ടുമുതലായിരിക്കും പുനരാരംഭിക്കുക

വിലക്ക് പിൻവലിച്ചതോടെ അന്താരാഷ്ട്ര വിമാന സർവ്വീസുകൾ ഇന്നു മുതൽ പുനരാരംഭിക്കും

തോമസ് വിന്റർ ബർഗിന്റെ അനദർ റൌണ്ടാണ് മേളയിലെ ഉദ്ഘാടന ചിത്രം സന്ദീപ് കുമാറിന്റെ മെഹറുന്നീസ മേള യിൽ പ്രദർശിപ്പിക്കും

കെ സംഘടിപ്പിക്കാനാവില്ലെന്ന് മന്ത്രി എ

എഫ്

മേള തിരുവനന്തപുരത്ത് നിന്ന് മാറ്റാൻ ഉദ്ദേശമില്ല തിരുവനന്തപുരം തന്നെയാവും സ്ഥിരവേദിയെന്നും മന്ത്രീ വൃക്തമാക്കി

എൽ ഫുഡ്ബ്ലോളിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ

സി സി

ആശുപത്രി നേരിയ ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെയാണ് അദ്ദേഹത്തെ ആൻജിയോപ്ലാസ്റ്റിക്കിന് വിധേയനാക്കിയത്